ശ്രീനഗറിലും മറ്റും നിരോധനാജ്ഞ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയോ വീട്ടുതടങ്കലിലാക്കുകയോ ചെയ്തതായി റിപ്പോർട്ട് കോൺഗ്രസ് പ്രവർത്തകസമിതി പുതിയ് അധ്യക്ഷനെ തീരുമാനിക്കാൻ ശനി യാഴ്ച ഡൽഹിയിൽ ചേരും മാധ്യമപ്രവർത്തകൻ കെ

ബഷീർ വാഹനാപകടത്തിൽ മരിച്ച സംഭവ ത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാന്റ് ചെയ്ത സർവ്വെ ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ റിമാന്റ് സെല്ലിലേക്ക് മാറ്റി മോട്ടോർ വാഹനങ്ങളിലെ മലിനീകരണം കുറയ്ക്കാൻ വൈദ്യുതി ഓട്ടോകൾ നിരത്തിലിറക്കുമെന്ന് മന്ത്രി എ

ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തവരുടെ മനസ്സുകൾ കൂടി കീഴടക്കാൻ ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി എം പിമാരോട് ആവശ്യപ്പെട്ടു ന്യൂഡൽഹിയിൽ ബി ജെ പി എംപിമാർക്കുവേണ്ടി സംഘ ടിപ്പിച്ച രണ്ടു ദിവസത്തെ പരിശീലനപരിപാടിയുടെ സമാപന സമ്മേളനത്തെ അഭി സംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

എതിരാളികൾക്കും തങ്ങൾക്ക് വോട്ടു ചെയ്യാത്തവർക്കുമെതിരെ തെറ്റായ ചിന്തകൾ പാടില്ലെന്നും പ്രധാനമന്ത്രി എംപിമാരെ ഉപദേശിച്ചു എല്ലാവ രുടെയും ക്ഷേമത്തിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ് ജമ്മു കശ്മീരിൽ സുരക്ഷാസന്നാഹം വീണ്ടും വർദ്ധിപ്പിച്ചു

ഒട്ടേറെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയോ വീട്ടു തടങ്കലിലാക്കുകയോ ചെയ്തതായി റിപ്പോർട്ടുണ്ട് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളും നിർത്താലാ ക്കി ഇന്നുപുലർച്ചെ മുതൽ ജനങ്ങൾ പുറത്തിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടു ത്തുമെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ ശ്രീനഗറിൽ അറിയിച്ചു വിദ്യാലയങ്ങൾ അട ച്ചിടാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ജമ്മു കശ്മീർ സർവകലാശാലയ്ക്ക് ഇന്ന് അവധി നൽകുകയും പരീക്ഷകൾ മാറ്റിവയ്ക്കുകയും ചെയ്തു പൊതുയോഗങ്ങളും റാലി കളും നടത്തുന്നതും തടഞ്ഞിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിമാരായ ഉമർ അബ്ദുള്ള മെഹ്ബൂബ മുഫ്തി എന്നിവരെ നിയന്ത്രണങ്ങളുടെ ഭാഗമായി വീടിന് പുറത്തിറ ങ്ങാൻ അനുവദിക്കില്ലെന്നും കേന്ദ്രങ്ങൾ വൃക്തമാക്കി കോൺഗ്രസ് നേതാവ് ഉസ്മാൻ മാജിദും സി പി ഐഎം എം എൽ എ എം

എന്നാൽ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി എത്തിയ അർദ്ധസൈനിക വിഭാഗങ്ങളെ നഗരത്തിലും താഴ്വരയിലെ പ്രശ്ന ബാധിത പ്രദേശങ്ങളിലും വിന്യസിച്ചതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ പറഞ്ഞു ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം ജമ്മുകശ്മീരിലെ നിലവിലെ സ്ഥിതി വിലയിരുത്തിയതായി റിപ്പോർട്ടുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബ ഇന്റലിജൻസ് ബ്യൂറോ മേധാവി അരവിന്ദ്കുമാർ റോ മേധാവി സാമന്ത്കുമാർ ഗോയൽ എന്നിവരും ആഭ്യ ന്തരമന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു അമർനാഥ് യാത്രയ്ക്ക് ഭീകര ഭീഷണി വർദ്ധിച്ച സാഹചര്യത്തിൽ ജമ്മുകശ്മീ രിലെ സുരക്ഷാ സ്ഥിതി ഗവൺമെന്റ് അവലോകനം ചെയ്യുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ അറിയിച്ചു

തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞ സാഹചരൃത്തിൽ പുതിയ അധ്യക്ഷനെ കണ്ടെത്തുന്ന കാര്യം യോഗം ചർച്ച ചെയ്യും

അതിനുശേഷം പാർട്ടി പ്രവർത്തകർ ചേർന്ന് പുതിയ അധ്യക്ഷനെ തെര ഞ്ഞെടുക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു മാധ്യമപ്രവർത്തകൻ കെ

സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായി രുന്ന അദ്ദേഹത്തെ വൈകുന്നേരം ഡിസ്ചാർജ്ജ് ചെയ്തശേഷം ആംബുലൻസിൽ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് എസ്

അമലിന്റെ മുന്നിൽ ഹാജരാ ക്കി ആംബുലൻസിലെത്തി മെഡിക്കൽ രേഖകൾ പരിശോധിച്ച മജിസ്ട്രേറ്റ് പൂജ പ്പുര ജില്ലാ ജയിലിലേക്ക് ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റാൻ ഉത്തരവിട്ടു തുടർന്ന് ജില്ലാ ജയിലിലെത്തിച്ച ശ്രീറാമിനെ ജയിലിലെ ഡോക്ടർ പരിശോധിക്കുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ റിമാന്റ് സെല്ലിലേക്ക് മാറ്റുകയും ചെയ്തു ശ്രീറാം വെങ്കിട്ടരാമനെ സ്ഥകാര്യ ആശുപത്രിയിൽ പഞ്ചനക്ഷത്ര സൌകര്യങ്ങൾ നൽകിയതിൽ പ്രതിഷേധിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയും ബഷീറിന്റെ കുടുംബം രംഗത്തുവരികയും ചെയ്ത തിനെ തുടർന്നാണ് ശ്രീറാം വെങ്കിട്ടരാമനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാറ്റി യത് തിരുവനന്തപുരത്ത് വാഹനപകടത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ കെ

ബഷീറിന്റെ ് കോഴിക്കോട് ചെറുവണ്ണൂരിലെ കുടുംബ വീട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി

ബഷീറിന്റെ കബറി ടവും പിതാവും സൂഫി വര്യനുമായ വടകര തങ്ങളുടെ മഖാമും ശ്രീധരൻപിള്ള സന്ദർശിച്ചു ഉത്തർപ്രദേശിലെ ഉന്നാവിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി കുൽദീപ് സിംഗ് സെങ്കാർ എം എൽ എയെയും കൂട്ടാളി ശശി സിംഗിനെയും ഇന്ന് ഡൽഹി കോടതിയിൽ ഹാജരാക്കും ഇന്നലെ രാത്രി കനത്ത സുരക്ഷയിൽ ഇവരെ ഡൽഹിയിൽ എത്തിച്ചു ജില്ലാ ജഡ്ജി ദിനേശ് ശർമ്മയുടെ പ്രൊഡക്ഷൻ വാറണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നത്

മഹിളാ കോൺഗ്രസ് ഭാരവാഹികളിൽ താഴെത്തട്ട് വരെ നിശ്ചിത എണ്ണം ദളിത് വനിതകളുടെ പ്രാതിനിധ്യം ഉറപ്പ് വരുത്തുമെന്ന് അവർ പറഞ്ഞു ് ് ് ് ് ് മോട്ടോർ വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന മലിനീകരണം കുറയ്ക്കാനായി വൈദ്യുതി ഓട്ടോകൾ നിരത്തിലിറക്കുമെന്ന് മന്ത്രി എ

കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷൻ ചെറുവണ്ണൂരിൽ സംഘടിപ്പിച്ച സമൃദ്ധി ജെ എൽ ജി ക്യാമ്പയിൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കുടുംബശ്രീ വനിതകൾക്കായി ഇ ഓട്ടോകൾ നിരത്തിലിറക്കാൻ വിവിധ പദ്ധതികൾ ഗതാഗത വകുപ്പ് അനുവദിക്കുമെന്നും അന്തരീക്ഷ മലിനീകരണമില്ലാത്ത ഗതാഗത രീതിക്ക് പ്രാമുഖ്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ് ് ് ് ് ് ് ആരോഗൃരംഗത്ത് ദീർഘവീക്ഷണത്തോടെയുളള പദ്ധതികളാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ

ആദിവാസി ഊരു നിവാസികളുടെ ആരോഗ്യസംരക്ഷണത്തിനായി നടപ്പാക്കുന്ന ഊരുമിത്രം പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം കോതമംഗലത്ത് നിർവ്വഹിക്കു കയായിരുന്നു മന്ത്രി പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി നിയമിച്ച ഊര് ആശമാർക്ക് ആദിവാസി കുടുംബങ്ങളുമായി ബന്ധമുണ്ടെന്നും അതിനാൽ ആരോ ഗ്യവകുപ്പിന് കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു

മഴ നിയമപ്രകാരമായിരുന്നു ഇന്ത്യയുടെ ജയം

മഴ കുറയാത്ത സാഹചര്യത്തിൽ ഇന്ത്യയെ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു ് സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമായി പലയിടങ്ങളിലും രാത്രി മുതൽ മഴ കനത്തു

വ്യാഴാഴ്ച വരെ ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി

് ് ് ് ് ് ് ് ് മഹാരാഷ്ട്രയിലെ മുംബൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ഉൾപ്പടെ ഉപയോഗിച്ച് രക്ഷാ പ്രവർത്തനങ്ങൾ തുടരുന്നു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നഗരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തീര പ്രദേശങ്ങളിലും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഗൊരേഗാവിൽ മണ്ണിച്ചിലിനെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റു മുംബൈയിലെ കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കണ ക്കിലെടുത്ത് സംസ്ഥാനത്തുനിന്ന് ഇന്ന് പുറപ്പെടുന്ന രണ്ടു ട്രെയിനുകൾ റദ്ദാക്കു കയും രണ്ടെണ്ണം വഴിതിരിച്ചുവിടുകയും ചെയ്തു ഇന്നത്തെ തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ്സും കന്യാകുമാരി മുംബൈ ജയന്തി ജനത എക്സ്പ്രസ്സുമാണ് റദ്ദാക്കിയത് ഇന്ന് കൊച്ചുവേളിയിൽ നിന്ന് ചണ്ഡീഗ ഡിലേക്ക് പോകുന്ന സമ്പർക്കക്രാന്തി എക്സ്പ്രസ്സും തിരുനൽവേലി ജാംനഗർ എക്സ്പ്രസ്സും തൃശൂർ പാലക്കാട് ജംഗ്ഷൻ സേലം ജോലാർപേട്ട റനിഗുണ്ട വഴി തിരിച്ചുവിട്ടു ഏലക്കായയുടെ വില സർവകാല റെക്കോർഡിൽ

നിന്ന് ഉൽപാദനം വീണ്ടും തുടങ്ങി കഴിഞ്ഞ വർഷമുണ്ടായ ഉരുൾപൊട്ടലിൽ നിലയത്തിലെ കനാലിലേക്ക് ചളിമണ്ണ് അടിഞ്ഞതിനെ തുടർന്നാണ് ഉൽപാദനം നിർത്തിവെച്ചത്

അതിർത്തിയോട് ചേർന്ന് മണൽ കടത്തും സജീവമായ സാഹചരൃത്തിലാണ് പരിശോധന പരിശോധനയ്ക്ക് ഉന്നത ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി

നിന്നു ഓൺലൈൻ വഴി പണം തട്ടുന്ന സംഘത്തിന്റെ തലവൻ തൃശൂരിൽ പിടിയിലായി ഉത്തർപ്രദേശ് മഥുര ബിഷംഭര സ്വദേശി ദിൽബാഗ് ആണ് പിടിയിലായത് സമീപത്ത് ആർമി ക്യാംപ് നടക്കുന്നുണ്ടെന്നും അവിടേക്കു ഭക്ഷണം ആവശ്യമു ണ്ടെന്നും പറഞ്ഞാണ് ഇയാൾ വിളിച്ചിരുന്നത് ഭക്ഷണം തയ്യാറായി കഴിയുമ്പോൾ ഓൺ ലൈൻ വഴി പണമടയ്ക്കാമെന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം ഹോട്ടലുടമസ്ഥരുടെ കാർഡ് നമ്പറും പിൻനമ്പറും കരസ്ഥമാക്കി പണം തട്ടുകയാണ് പതിവ് ് ് ് ് ് ് ് ് ് പ്രമുഖ ഗാന്ധിയനും കവിയും പ്രഭാഷകനുമായ തലശ്ശേരി കരിയാട്ടെ പട്ടേരി കുഞ്ഞികൃഷ്ണൻ അടിയോടി അന്തരിച്ചു

കേരള ഗാന്ധി സ്മാരക നിധി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി പുരസ്കാര ങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നട ക്കും

അവിശ്വാസപ്രമേയ നോട്ടീസ് ഇന്ന് കലക്ടർക്ക് കൈമാ റുമെന്നാണ് സൂചന ് ് ് ് ് കേരളത്തിൽ ഭരണമില്ലാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്ന് കെ

സുധാകരൻ എം

നിയമത്തെയും നീതിയെയും വെല്ലുവിളിച്ചു കൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു